ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ

ജെപി സംസ്ഥാന അധ്യക്ഷനായി ശ്രീ

പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ

നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് വരികയായിരുന്നു ശ്രീ

നിലവിൽ ബിജെപിയിൽ തർക്കങ്ങളില്ലെന്നും എല്ലാവരേയും ഒരുമിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ശ്രീ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു